പ്രചാരണം ശക്തം

തീരുമാനമെടുക്കാൻ തെരഞ്ഞെട്ടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി നിർദ്ദേശം ി ഫോനി ചുഴലിക്കാറ്റ് നാളെ ഒഡീഷാ തീരത്തെത്തും ന് കേരളത്തിൽ ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യത

ചെയ്തുവെന്ന പരാതിയിൽ മൂന്നുപേർക്കെതിരെ പോലീസ് കേസെടുത്തു പിശപ്പ് രഹിത ഇടുക്കി പദ്ധതിക്ക് ഇന്ന് തുടക്കം

ഐ

സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും

പ്രമുഖ കക്ഷി നേതാക്കൾ വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രചാരണങ്ങളിൽ വ്യാപൃതരാണ്

ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ മധ്യപ്രദേശിൽ രാജഗഡ് നീമഞ്ച് സൊഹാർ എന്നിവിടങ്ങളിൽ റാലികളെ അഭിസംബോധന ചെയ്യും കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി ജാർഖണ്ഡിലെ സിന്ദേഗായിലും രാജസ്ഥാനിലെ ജയ്പൂരിലും റാലിയിൽ പങ്കെടുക്കും

എ അധ്യക്ഷ സോണിയാഗാന്ധിയും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി വദ്രയും റായ്ബറേലി മണ്ഡലത്തിൽ പ്രചാരണർ നടത്തും കേന്ദ്രമന്ത്രി മഹേഷ് ശർമ്മ റായ്ബറേലിയിലും ജെ

നദ്ദ അമേത്തി ജില്ലയിലും പ്രചാരണ റാലികളെ അഭിസംബോധന ചെയ്യും വോട്ടെടുപ്പ് സമയം അത്യുഷ്ണത്തിന്റെ പശ്ചാത്തലത്തിൽ വോട്ടെടുപ്പിന്റെ സമയക്രമം മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ തീരുമാനമെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു

രാജസ്ഥാനിലെയും സമീപ പ്രദേശങ്ങളിലെയും ഉഷ്ണക്കാറ്റിന്റയും പശ്ചാത്തലത്തിലാണ് ഹർജി സമർപ്പിച്ചിട്ടുള്ളത്

പിലാത്തറ എ യു

എന്നിവർക്കെതിരെയാണ് കേസ് ജില്ലാ വരണാധികാരി കൂടിയായ കാസർഗോഡ് ജില്ലാ കലക്ടറുടെ പരാതിയെ തുടർന്നാണ് കേസ് ഫേസ്ബുക്കിൽ തങ്ങൾക്കെതിരെ അപകീർത്തിപരമായ പോസ്റ്റിട്ടു എന്ന ഈ മൂന്ന് പേരുടെ പരാതിയിൽ പരിയാരം പൊലീസ് മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്

ഉച്ചക്ക് ശ്രണ്ട് മണിക്ക് കളക്ടർ സജിത് ബാബുവിന്റെ നേതൃത്യത്തിലാണ് തെളിവെടുപ്പ് നടത്തുക

പുരി ജില്ലയിലെ തീരത്തായിരിക്കും ചുഴലിക്കാറ്റ് എത്തുക

ഖോർദ കട്ടക്ക് ജാജ്പൂർ ഭദ്രക് ബാലസോർ എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട് ഗൻജാം ഗജപതി ജഗത് സിംങ് പൂർ എന്നീ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി നവീൻ പട്നായിക് മുൻകരുതൽ നടപടികൾ വിലയിരുത്തി

ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും പൊലീസ് ഉദ്യോഗസ്ഥരുടെയും അവധി റദ്ദാക്കി

വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് മുതൽ മൂന്ന് ദിവസം അവധി നൽകി ദേശീയ ക്രൈസിസ് മാനേജ്മെന്റ് സമിതി ഇന്ന് വീണ്ടും യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തും കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയില്ല

ഇന്ന് ഫിസിക്സ് കെമിസ്ട്രി പരീക്ഷകളും നാളെ കണക്ക് പരീ ക്ഷയുമാണ്

ഡൽഹി മുംബൈ ദുബായ് എന്നിവിടങ്ങളിൽ ഓരോ പരീക്ഷാ കേന്ദ്രവും ഉണ്ട്

മെഡിക്കൽ പ്രവേശനത്തിനാ യുള്ള നീറ്റ് പരീക്ഷ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിമുതൽ അഞ്ച് മണിവരെ നടക്കും

ബാങ്ക് പ്രതിനിധികൾ ഉൾപ്പടെ നോട്ടീസ് കൈപ്പറ്റിയവർക്ക് പങ്കെടുക്കാം

ഭൂമിയുടെ വിപണി വിലയും ഗവൺമെന്റ് നിശ്ചയിച്ച ന്യായവിലയും തമ്മിലുള്ള അന്തരം കുറച്ചുകൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് ന്യായവില വർധന ധനവകുപ്പ് കഴിഞ്ഞ ബജറ്റിൽ നിർദ്ദേശിച്ച വിലവർധനയാണിത്

രാജ കേരളത്തിൽ ബി ജെ പി വലിയ മുന്നേറ്റം നടത്തുമെന്നും പല സീറ്റുകളിലും വിജയിക്കുമെന്നും ബി ജെ പി ദേശീയ സെക്രട്ടറിയും സംസ്ഥാന പ്രഭാരിയുമായ എച്ച്

കൊച്ചിയിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രളയക്കെടുതിയും ശബരിമല വിഷയവും ബി ജെ പിക്ക് അനുകൂലമായി വർത്തിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് പി

ആറ് മാസം മുമ്പ് ഇവർക്ക് എറണാകുളത്ത് സംസ്ഥാനതല പ്പരിശ്രീലനം ലഭിച്ചിരുന്നു ജില്ലാതല പരിശീലനവും നല്കും ഗുളിക്പ്പുഴ കക്കയംഡാം റിസർവോയർ കുറ്റിയാടി ഇരുവഴിഞ്ഞിപ്പുഴ ് എന്നിവിടങ്ങളിലാണ് പരിശീലനം നല്കുക

തിരച്ചിൽകൂടുതൽ കാര്യക്ഷമമാക്കാൻ ക്യാമറകൾ ഉപയോഗിക്കും

ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ഇന്ന് സൺ റൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും

ഇന്നലെ ക്യാപ്പിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർകിംഗ്സിന് വൻവിജയം

ആകാശ് ദീപ്സിംഗ് ചിംഗ്ലെൻസന സിംഗ് വനിതാ താരം ദീപികാ താക്കൂർ എന്നിവരെ അർജ്ജുന പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്തു പരിശീലകരായ ഡൽജിത് സിംഗ് ബി

ചൌഹാൻ രമേശ് പത്താനിയ എന്നിവരെ ദ്രോണാച്ചിരു പുരസ്കാരത്തിനും നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്

നാട്ടുകാരുടെ തദ്ദേശസ്വയംഭരണ പ്രവർത്തകരുടെയും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻുകളുടെയും സംയുക്ത പ്രവർത്തനമാണ് കൂട്ടം പേരൂർ ആറിന് ജീവൻ നൽകിയത്

ജെ ടി ഹാളിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കും മന്ത്രി ഇ

തുടർന്ന് ചാരുലത നാടക അവതരണത്തിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര നടൻ മധു നിർവഹിക്കും

എസ് ആർ

എൽ വി മാർക്ക് റോക്കറ്റാണ് വിക്ഷേപണത്തിന് ഉപ്പയോഗിക്കുകയെന്ന് ഐ എസ്

ഒ വാർത്താകുറിപ്പിൽ അറിയിച്ചു

മുത്തങ്ങ തോൽപ്പെട്ടി എന്നിവിടങ്ങളിലാണ് സഞ്ചാരികൾക്ക് കാനന സവാരി അനുവദിച്ചിട്ടുള്ളത് സഞ്ചാരികൾക്ക് രാവിലെ ഏഴുമണി മുതൽ പത്തു വരെയും വൈകിട്ട് മൂന്നുമണി മുതൽ അഞ്ചുമണി വരെയുമാണ് പ്രവേശനം

ഫയർ ഗ്യാസ് പൊട്ടിതെറിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം കടപൂർണ്ണമായും കത്തി അടുത്ത കടകൾ ഭാഗിമായും കത്തിയിട്ടുണ്ട്